ക്ഷണിച്ചു

ജെ

ജെ

ശേഷൻ ചെന്നൈയിൽ നിര്യാതനായി

കേന്ദ്രമന്ത്രി ധർമേന്ദ്ര പ്രധാൻ അബുദാബിയിൽ എത്തി

ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ബി ജെ പി പിൻമാറിയ സാഹചര്യത്തിലാണ് ഗവർണർ ശിവസേനയെ ക്ഷണിച്ചത് ഇന്ന് രാത്രി എഴരയ്ക്ക് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം സഭയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചു

ഗവൺമെന്റ് രൂപീകരിക്കാനില്ലെന്ന് ഇന്നലെ ബി ജെ പി കോർ കമ്മറ്റി യോഗത്തിനുശേഷം സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രകാന്ത് പാട്ടീലാണ് അറിയിച്ചത്

തുടർന്ന് ശിവസേന നിയമസഭാ കക്ഷി നേതാവ് ഏക്കരാസ് ഷിൻഡേയോട് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു ്യീയ്മ്സഭയിലേയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശിവസേന അംഗങ്ങൾ മുംബൈയിലെ ഹോട്ടലിൽ താമസിക്കുകയാണ്

സി

ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഞ്ച് ഘട്ടമായാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്

ആദ്യ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപിയും കോൺഗ്രസ്സും ഇന്നലെ പുറത്തിറക്കി

അഞ്ച് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ്സ് പുറത്തുവിട്ടത്

കരസേനയും പ്രത്യേക സേനാംഗങ്ങളും സംയുക്ത തെരച്ചിൽ നടത്തുന്നതിനിടെ വിജ്ഹാര ലേ ദാരയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്

ഈ പദ്ധതി പ്രകൃതിസൌഹാർദ്ദ ഇന്ധനത്തിന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ക്ട്ര്യഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ഗവൺമെന്റിന്റെ ലക്ഷ്യം സ്ാക്ഷാത്ക്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി ജാവ്ദേക്ക്ർ ട്വ്റ്ററിലൂടെ അറിയിച്ചു

എ

അബുദാബിയിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പെട്രോളിയം പ്രദർശനത്തിലും സമ്മേളനത്തിലും പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം സമ്മേളനത്തിന്റെ ഭാഗമായ മന്ത്രിതല ചർച്ചയിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും

ഇ സഹമന്ത്രി ഡോ

പ്രദർശന നഗരിയിലെ ഇന്ത്യൻ പവിലിയൻ ഡോ സുൽത്താനുമായി ചേർന്ന് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും

എ ഇ പെട്രോളിയം മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും വിവിധ രാഷ്ട്രങ്ങളിലെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിമാരുമായും അന്താരാഷ്ട്ര ഊർജ്ജ സംഘടനകളുടെ തലവന്മാരുമായും ആഗോള എണ്ണ പ്രകൃതി വാതക കമ്പനികളുടെ സി ഇ ഒ മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും

പ്രതിരോധ മന്ത്രാലയം ഡി ആർ ഡി ഒ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കര വ്യോമ നാവിക സേനകൾ എന്നിവ ഉൾപ്പെടെ പദ്ധതിയുടെ എല്ലാ ഗുണഭോക്താക്കളെയും ഒന്നിച്ചുകൊണ്ടുവരികയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ് മുഖ്യാതിഥി ആയിരിക്കും

ശേഷൻ ചെന്നൈയിൽ നിര്യാതനായി

കുറച്ചുകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു

പ്രതിരോധ സെക്രട്ടറി കാബിനറ്റ് സെക്രട്ടറി തുടങ്ങിയ പ്രധാന ചുമതലകൾ വഹിച്ചു

സ്ഥാനാർത്ഥികളുടെ ചെലവ് നിയന്ത്രിക്കുന്നതും പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നതും ഉൾപ്പെടെ ശക്ത നടപടികൾ കൈക്കൊണ്ടു

സ്ഥിരോൽസാഹവും ആത്മാർത്ഥതയുമുള്ള രാഷ്ട്ര സേവകനായിരുന്നു ശേഷനെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ശേഷൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തമാക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അദ്ദേഹത്തിന്റെ സംഭാവന എന്നും സ്മരിക്കപ്പെടുമെന്ന് ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റങ് ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്കൃതം ഒരു പൌരാണിക ഭാഷയാണ് എന്നാൽ ഇത് ഇന്നും പ്രസക്തവും ഉപ്പുയോഗപ്രദവുമാണെന്ന് അദ്ദേഹം ഇന്നലെ ന്യൂഡൽഹിയിൽ സംസ്കൂർപ്പിശ്വസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു മ്യൂഷ്ട്രിട്ടത്തിന്റെ ഐക്യത്തിന്റെ ചിഹ്നമായ സംസ്കൃതം എല്ലാവരെയുള് പ്രസ്പരം ബന്ധിപ്പിക്കുന്നതായി ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര ആരോഗ്യമൂന്തി ഡോ

നാഗ്പൂരിൽ ഇന്നലെ രാത്രി നടന്ന പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ സന്ദർശകരെ ദ്ദാ റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി ഹാട്രിക് ഉൾപ്പെടെ ആറ് വിക്കറ്റെടുത്ത ദീപക് ചാഹറിന്റെ ബൌളിങ്ങാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് മൂന്ന് ഒവറും രണ്ടു ബോളും മാത്രം എറിഞ്ഞ ചാഹർ ഏഴ് റൺസ് മാത്രം വിട്ടുനൽകിയാണ് ആറ് വിക്കറ്റ് നേട്ടിയത്

മായിരാജ് അഹ്മ്മദ് ഖാൻ വെള്ളി മെഡലും കരസ്ഥമാക്കി

ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ വെങ്കല മെഡൽ നേട്ടത്തോടെയാണ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്

ഏഴു കുട്ടികൾ ചികിത്സയിലാണ് മരണകാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ബംഗാളിൽ ഏഴും ഒഡീഷയിൽ ർണ്ടുപേരും മരിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമുന്ത് അമിത്ഷായും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഫോണിൽ വീളിച്ച് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ഒഡീഷയിലും ബുൾബുൾ ചുഴ്ലി കാര്യമായ നാഷനഷ്ടമുണ്ടാക്കി

തീരമേഖലയിൽ കനത്ത നാശമുണ്ടായി മരങ്ങൾ കടപുഴകി വൈദ്യുതി ഫോൺ ബന്ധങ്ങൾ നിലച്ചു ബംഗ്ലാദേശിൽ രണ്ടുപേർ മരിച്ചു

നാലായിരം വീടുകൾ തകർന്നു കാര്യമായ നാശനഷ്ടമുണ്ടായില്ലെന്ന് ദുരന്തനിവാരണ ചുമതലയുള്ള മന്ത്രി ഡോ

മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണങ്ങളും പൂർണ്ണമായി പിൻവലിച്ചു